അസമിൽ കുടിയേറ്റ വിഷയം കൈകാരൃം ചെയ്യാൻ പ്രത്യേക ട്രൈബ്യൂണലിന് കേന്ദ്ര അനുമതി

ഇ എസ് ഐ നിയമത്തിൽ ഭേദഗതി തൊഴിലാളികളുടേയും തൊഴിൽ ഉടമയുടേയും വിഹിതം കുറച്ചു

വായു ചുഴലിക്കാറ്റ് ഗുജറാത്ത് തീരം വിട്ടു കനത്ത മഴയും കാറ്റും തുടരുമെന്ന് മുന്നറിയിപ്പ്

കിർഗിസ്ഥാൻ തലസ്ഥാനമായി ബിഷകേകിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചുകോടിയുട്ടെ പ്ലീനറി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

പ്രസംഗത്തിനിടെ പാകിസ്ഥാനെ പേരെടുത്ത് പറയാതെ ടെററിസ്ഥാൻ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്

തീവ്രവാദികൾക്ക് പിന്തുണ നൽകുന്ന രാജ്യങ്ങൾ അത് അവസാനിപ്പിക്കണം അല്ലാതെ അവരുമായി ചർച്ചയില്ല ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് മെച്ചപ്പെടേണ്ടത് തീവ്രവാദത്തിനെതിരെ ഫലപ്രദമാകുന്നത് ഇതാണെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന വാദം പാക് പ്രധാനമന്ത്രി ഇമ്രാൻ ഖാൻ ഇന്നലെ പ്രസംഗത്തിനിടെ സൂചിപ്പിച്ചിരുന്നു

ഉച്ചകോടിക്കിടെ കിർഗിസ്ഥാൻ ഖസാക്കിസ്ഥാൻ മംഗോളിയ ബലാറസ് ഇറാൻ എന്നീ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരുമായും പ്രധാനമന്ത്രി ഇന്ന് ഉഭയകക്ഷി ചർച്ചുക്ക്ർ ന്ടത്തും പ്രതിനിധിതല ചർച്ചുകൾക്ക് ശേഷം ഇന്ത്യയും കിർഗിസ്ഥാനും കരാറുകളിൽ ഒപ്പുവയ്ക്കും

ഇന്നലെ ചൈന റഷ്യ അഫ്ഗ്ഗാനിസ്ഥാൻ രാഷ്ട്രതലവൻമാരുമായി ശ്രീ നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി

ഇന്ത്യയിൽ ബാങ്ക് ഓഫ് ചൈനയുടെ ശാഖ തുറക്കുന്നത് മാസുദ് അസർ വിഷയം എന്നിവയിലും ആശയവിനിമയം നടന്നതായി വിദേകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ മാധ്യമങ്ങളെ അറിയിച്ചു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച വ്ളാഡിവോസ്റ്റോക്കിൽ നടക്കുന്ന കിഴക്കൻ സാമ്പത്തിക ഫോറത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും

മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ അമേഠിയിൽ പ്രതിരോധ നിർമ്മാണ പദ്ധതി വിജയകരമായി നടപ്പാക്കിയതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുട്ടിനെ നന്ദി അറിയിച്ചു അഫ്ഗാൻ പ്രസിഡന്റ് അഷ്റഫ് ഗാനിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി അഫ്ഗാനിസ്ഥാനിലെ സമാധാന ശ്രമങ്ങളിൽ ഇന്ത്യയുടെ സഹകരണം സംബന്ധിച്ചും ഇരു നേതാക്കളും ചർച്ച നടത്തി

ജയശങ്കർ ഇന്ന് താജ്കിസ്ഥാൻ തലസ്ഥാനമായ ദുഷാൻബെയിൽ വിശാല ഏഷ്യ ഉച്ചകോടിയിൽ പങ്കെടുക്കും ഏഷ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള ആശയവിനിമയവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടുള്ളതാണ് ദിദിന ഉച്ചകോടി ഏഷ്യൻ മേഖലയിലെ സഹകരണം സമാധാനം സുരക്ഷ സ്ഥിരത എന്നിവ ഊട്ടിയുറപ്പിക്കാൻ ആരംഭിച്ചതാണ് വിശാല ഏഷ്യാ ഫോറം

അസമിലെ കുടിയേറ്റ വിഷയത്തിൽ നിരീക്ഷണം നടത്താനും രജിസ്റ്റർ ചെയ്ത കേസുകൾക്ക് പരിഹാരം കാണാനുമാണ് ഫോറിനർ ട്രൈബ്യൂണലെന്ന് ഇ മിഷൻ സി ഇ ഒ അനന്ദ് പ്രകാശ് തിപ്പിട്ടിട്ടി ് പറഞ്ഞു നീതിന്യായ സംവിധാനത്തെ ഡിജിറ്റൽ സ്പാങ്കേതിക വിദ്യയുടെ പുതിയ സംവിധാനങ്ങൾ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

സംസ്ഥാനത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളെജുകളുടേയും ആശുപത്രികളുടേയും പ്രവർത്തനത്തെ സമരം ബാധിച്ചിട്ടുണ്ട് കൊൽക്കത്തയിലെ എൻ ആർ എസ് മെഡിക്കൽ കോളെജിൽ ഒരു രോഗി മരിച്ചതിനെ തുടർന്ന് ജനക്കൂട്ടം രണ്ട് ഡോക്ടർമാരെ ആക്രമിച്ചിരുന്നു ഇൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക് ആരംഭിച്ചത് പണിമുടക്കുന്ന ഡോക്ടർമാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഐ എം എ ഇന്ന് രാജ്യവ്യാപകമായി പ്രതിഷേധ ദിനം ആചരിക്കുന്നു

പി യും ് കൂട്ടത്തി ചികിത്സയും ബഹിഷ്കരിച്ചു അത്യാഹിത വിഭാഗത്തെയ്യും ഐ

യു വിനെയും സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്

ഐ പദ്ധതിയിൽ തൊഴിലാളിയും തൊഴിലുടമയും അടയ്ക്കേണ്ട വിഹിതത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കുറവുവരുത്തി

ചരിത്രപരമായ തീരുമാനമാണിതെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു

തൊഴിൽ ഉടമകളുടെ സാമ്പത്തിക ഭാരത്തിനും കുറവ്കുണ്ടാകും

ഇവിടെ സ്വകാര്യ മേഖലയിൽ നിന്ന് നിക്ഷേപം ക്ഷണിക്കുന്നതായും മന്ത്രി പറഞ്ഞു ന്യൂഡൽഹിയിൽ ഇന്ത്യൻ വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട ദേശീയ സമിതി യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഗ്രാമീണ ഇന്ത്യയ്ക്കാണ് വൃവസായ രംഗത്ത് ഊന്നൽ നൽകുകയെന്നും ശ്രീ ഗഡ്കരി പറഞ്ഞു

ഐ ഐ ദേശീയ കൌൺസിൽ യോഗത്തിൽ സ്സ്മാരിക്കവെ അദ്ദേഹം അറിയിച്ചു പരിസ്ഥിതി സംരക്ഷണത്തിന് പ്രിഘാതമാകാതെ ഈ സമയപരിധി രണ്ട് മാസമായി കുറയ്ക്കുനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു വികസനത്തിന് ഗവേഷണം പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു

രാത്രിയോടെ ചുഴലിക്കാറ്റിന്റെ ദിശ മാറി ഒമാൻ തീരത്തേയ്ക്ക് നീങ്ങി സൌരാഷ്ട്രയുടെ തീരപ്രദേശങ്ങളിൽ ശക്തിയായ ചുഴലിക്കാറ്റിനൊപ്പം കനത്ത മഴയും ഉണ്ടായി

കനത്ത ദുരന്തം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് സൌരാഷ്ട്ര മേഖലയിൽ നിന്ന് മൂന്നു ലക്ഷത്തോളം പേരെ ഒഴിപ്പിച്ചിരുന്നു കനത്ത നാശമാണ് ഗുജറാത്തിന്റെ പടിഞ്ഞാറൻ തീരങ്ങളിൽ ചുഴലിക്കാറ്റ് വരുത്തിയിരിക്കുന്നത് ഗുജറാത്തിൽ വീശിയ വായു ചുഴലിക്കാറ്റിന്റെ ഭാഗമായി സംസ്ഥാനത്ത് തീരമേഖലകളിൽ ശക്തമായ പൊടികാറ്റും മഴയും അനുഭവപ്പെട്ടു

ഇന്നലെ രാത്രി തീരമേഖലയ്യിൽ ശ്നക്തമായ മഴ അനുഭവപ്പെട്ടു ഇന്നും മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് രാജസ്ഥാന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലും പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും ചുഴലിക്കാറ്റിന്റെ ഭാഗമായി മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്

കേന്ദ്ര ബജറ്റിനു മുന്നോടിയായാണ് ധനകാര്യ അടിസ്ഥാന സൌകര്യ മേഖലകളിലെ വിദഗ്ദ്ധരുമായി ഇന്നലെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയത് ദേശീയപാത റെയിൽവേ ടെലികോം വാഹന വ്യവസായം എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പ്രധാനമായും ചർച്ച നികുതി ഇളവുകളും മറ്റും നൽകുന്നത് നിക്ഷേപം ചെയ്തത് വർധിക്കാൻ സഹായിക്കുമെന്നും ചർച്ചയിൽ സംബന്ധിച്ച വ്യാപാര പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു സാമൂഹ്യ സാമ്പത്തിക മേഖലയിലെ പ്രമുഖരുമായി ശ്രീമതി നിർമല സീതാരാമൻ ഇന്ന് കൂടിക്കാഴ്ച നടത്തും

സമസ്തിപൂർ ബഗുസരായി വൈശാലി എന്നീ ജില്ലകളിൽ ഉൾപ്പെടെ പുതിയ പ്രദേശങ്ങളിലേക്ക് രോഗം പടരുകയാണ് കേന്ദ്രസംഘം ഡോക്ടർമാർ പ്രദേശത്തെ ഡോക്ടർമാരെ സഹായിക്കാനായി മുസാഫർപൂരിൽ പ്രവർത്തിക്കുന്നുണ്ട്

ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ഗിരീഷ് കർണാഡിന്റെ നിര്യാണത്തെ തുടർന്ന് ഈ ചടങ്ങ് നീട്ടിവച്ചിരുന്നു

കോൺഗ്രസ്സിന്റെ ഒരു മന്ത്രിയും ജെ ഡി യു വിന്റെ രണ്ട് മന്ത്രിമാരുമാണ് ഇന്ന് ചുമതലയേറ്റെടുക്കുക

സെക്രട്ടറിയുമായ സത്യാനന്ദ് ശർമ്മയും ചില അംഗങ്ങളും രാജിവച്ച് പുതിയ പാർട്ടി രൂപീകരിച്ചു

പാർട്ടിയിൽ കുടുംബാംഗങ്ങളെ മാത്രമാണ് ശ്രീ പാസ്വാൻ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് ശ്രീ ശർമ്മ ആരോപിച്ചു

അപകടങ്ങൾ ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല